എത്രയും വേഗം തീരുമാനം വേണ്മെന്ന് ബിജെപി

നിർണായക നിയമസഭാ സമ്മേള നത്തിന് ഇന്ന് തുടക്കം കടലാക്രമണം പ്രതിരോധിച്ച് തീരമേഖലയെ സംരക്ഷിക്കാൻ ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ

ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇംഗ്ലണ്ട് ന്യൂസിലാന്റിനെ നേരി ടും ൾ ൽ ൾ കർണാടകയിൽ പത്ത് വിമത എംഎൽഎമാർ സ്പീക്കർക്ക് വീണ്ടും രാജിക്കത്ത് നൽകി സൂപ്രീം കോടതി ഉത്തരവനുസരിച്ച് ഇന്നലെ വൈകീട്ട് വിധാൻസൌദയിലെ സ്പീക്കറുടെ ചേംബറിലെ ത്തിയാണ് കോൺഗ്രസിലെ ഏഴും ജെഡിഎസിലെ മൂന്നും വിമത എംഎൽഎമാർ രാജിക്കത്ത് നൽകിയത് രാജി നൽകിയ ശേഷം എംഎൽഎമാർ മുംബൈയിലെ ഹോട്ടലിൽ തിരിച്ചെത്തി രാജിക്കത്തിൽ മിന്നൽവേഗത്തിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് സ്പീക്കർ കെ

രമേശ്കുമാർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു രാജി ശരിയായ രൂപത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഇത് സ്വമേധയാ സമ്മർദ്ദങ്ങളില്ലാതെ നൽകിയതാണോ എന്ന് തനിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ചട്ടപ്രകാരമായി രിക്കും തീരുമാനമെടുക്കുകയെന്നും രാത്രി മുഴുവൻ ഇരുന്ന് ഇത് പരിശോധിക്കുമെന്നും സ്പീക്കർ അറിയിച്ചു നടപടികൾ മുഴുവൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ടെന്നും അത് ഇന്ന് സൂപ്രീ കോടതി യിൽ സമർപ്പിക്കുമെന്നും സ്പീക്കർ പറഞ്ഞു

അയോഗൃരാക്കണമെന്ന് കോൺഗ്രസ് ആവശൃപ്പെട്ടവരുടെ പട്ടികയിൽ രാമലിംഗ റെഡ്ഡിയുടെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല എംഎൽഎമാരുടെ രാജിയിൽ സ്പീക്കർ എത്രയും വേഗം തീരു മാനമെടുക്കണമെന്ന് മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയു മായ പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു സംസ്ഥാ നത്തെ ഭരണഘടനാ പ്രതിസന്ധിയിൽ തീരുമാനം എടുക്കുന്നത് വലിച്ച് നീട്ടരുതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സ്പീക്കർ രാജി സ്വീകരിച്ചില്ലെന്ന് കാണിച്ച് വിമത എംഎൽഎമാർ നൽകിയ ഹർജി സൂപ്രീം കോടതി ഇന്ന് പരിഗണി ക്കും രാജിയുടെ കാര്യത്തിൽ തീരുമാനമെടുത്ത് ഇന്നറിയിക്കാൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി അധ്യക്ഷനായ ബെഞ്ച് സ്പീക്ക റോട് ആവശ്യപ്പെട്ടിരുന്നു

രാഷ്ട്രീയ പ്രതിസന്ധിക്കിടെ കർണാടക നിയമസഭയുടെ നിർണാ യക വർഷകാല സമ്മേളനം ഇന്നാരംഭിക്കും

സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അംഗങ്ങൾക്ക് കോൺഗ്രസും ജെഡിഎസും വിപ്പ് നൽകി

എന്നാൽ രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നാണ് കുമാര സ്വാമിയുടെ നിലപാട് പ്രതിപക്ഷ മുക്ത ഇന്ത്യ എന്ന ബിജെപി അജണ്ടയുടെ ഭാഗമാണ് കർണാടകയിലെ കുതിരക്കച്ചവടമെന്ന് സിപിഐഎം ജനറൽ സെക്ര ട്ടറി സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി ഇത് ജനാധിപത്യത്തിന് അപ കടമാണെന്നും അദ്ദേഹം പറഞ്ഞു അധികാരം കയ്യടക്കാൻ ബിജെപി ഏതറ്റം വരെയും പോകുമെന്ന് അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു കർണാ ടകയിലേയും ഗോവയിലേയും പ്രതിസന്ധി കൈകാരൃം ചെയ്യുന്ന തിൽ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടുവെന്നും യെച്ചൂരി കുറ്റ പ്പെടുത്തി രാഷ്ട്രീയ മാർക്കറ്റിൽ വിൽപ്പനചരക്കായി കോൺഗ്രസ് സാമാജികർ മാറിയെന്നും യെച്ചൂരി പറഞ്ഞു റെയിൽവെ മന്ത്രാലയത്തിന്റെ ധനാഭ്യർത്ഥന ചർച്ചക്ക് മന്ത്രി പീയുഷ് ഗോയൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് ലോക്സഭയിൽ മറുപടി നൽകും തുടർന്ന് ധനാഭ്യർത്ഥന വോട്ടിനിടും ഇന്നലെ ഉച്ചകഴിഞ്ഞ് ആരം ഭിച്ച ചർച്ച അർധരാത്രിയിലാണ് പൂർത്തിയായത് നൂറോളം അംഗ ങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു

റെയിൽവെയുടെ ആസ്തി മോദി ഗവൺമെന്റ് വിൽക്കാൻ ശ്രമി ക്കുകയാണെന്നും റെയിൽവെയെ സ്വകാര്യ വൽക്കരിക്കുകയാ ണെന്നും പ്രതിപക്ഷം ചർച്ചയിൽ കുറ്റപ്പെടുത്തി എന്നാൽ റെയിൽവെയുടെ പ്രകടനം ഏറെ മെച്ചപ്പെട്ടതായി ബിജെപി അംഗ ങ്ങൾ അഭിപ്രായപ്പെട്ടു

കടലാക്രമണത്തിന് ഇരയാവുന്നവർക്കായി താത്കാ ലിക പുനരധിവാസകേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കു മെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തീരസംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിയമസഭാ മന്ദിരത്തിൽ ചേർന്ന തീരമേഖലയിലെ എംഎൽഎമാരുടെ യോഗത്തിൽ അദ്ധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യ മന്ത്രി പുലിമൂട്ടുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ കരിങ്കല്ലിന്റെ ക്ഷാമം പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറി യിച്ചു കടലാക്രമണം സംബന്ധിച്ച് ശാസ്ത്രീയമായി പഠിക്കും തീര പ്രദേശത്തുനിന്ന് നൂറിലേറെപേരെ ഒന്നിച്ചു മാറ്റിതാമസപ്പിക്കേണ്ട സാഹചരൃത്തിൽ ഒരു പാക്കേജായി സ്ഥലം കണ്ടെത്തി പുനരധി വാസം നടപ്പാക്കുന്നത് പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അന്തർസംസ്ഥാന നദീജല പ്രശ്നങ്ങൾ കൈകാരൃം ചെയ്യാൻ സ്ഥിരം ഹബ് പാലക്കാട്ട് മൂന്ന് മാസത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ജലസേചന വകുപ്പിന്റെ ത്രൈമാസ അവലോകന യോഗത്തി ലാണ് തീരുമാനം ഒന്നര കോടി രൂപ ചെലവഴിച്ചാണ് ഹബ് നിർമ്മി ക്കുന്നത് കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി ജലസേചന മേഖല യിൽ പുതിയ പദ്ധതികൾ ആവിഷ്ക്കരിക്കാനും തീരുമാനമായി സംസ്ഥാനത്ത് ലഭ്യമായ ജലം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യം ്മുന്നിൽകണ്ടാണ് പുതിയ പദ്ധതികൾ ആവിഷ്ക്കരിക്കുന്ന ത് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് ഇത് കൂടുതൽ സഹായക മാവുമെന്നും യോഗം വിലയിരുത്തി ഫയലുകളുടെ നീക്കത്തിന് വേഗം വർദ്ധിപ്പിക്കാനായി വിവിധ ഓഫീസുകളെ ഏകീകൃത സോഫ്ട്വെയറിന് കീഴിലാക്കാനും യോഗം തീരുമാനിച്ചു

മന്ത്രി ഇ ചന്ദ്രശേഖരൻ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു ഇംഗ്ലണ്ട് ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിലെത്തി നിലവിൽ ചാമ്പ്യൻമാരായ ഓസ്ട്രേലിയയെ സെമിയിൽ എട്ട് വിക്കറ്റിന് തകർത്താണ് ഇംഗ്ലണ്ട് കലാശപ്പോരാട്ടത്തിന് യോഗൃത നേടിയത്

ഇരു ടീമുകളും ലോകകപ്പിലെ ആദ്യ കിരീടത്തിനായാണ് മറ്റന്നാൾ പോരിനിറങ്ങുന്ന ത് സാമൂഹ്യനീതിക്കും ലിംഗ സ്മത്വത്തിനും വേണ്ടി തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കായി സംഘടിപ്പിച്ച ദ്വിദിന ദേശീയ ശിൽപശാല തൃശൂർ കിലയിൽ ഇന്ന് സമാപിക്കും ഇതര സംസ്ഥാനങ്ങളിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് മേഖലയിൽ മികവു പുലർത്തുന്നതിന് മാർഗ്ഗനിർദേശങ്ങൾ ശിൽപ്പശാലയിൽ നൽകി

ബന്ധുനിയമനവുമായി ബന്ധപ്പെട്ട് മന്ത്രി ഡോ

ജലീലിനെ തിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി

ഫിറോസ് പിൻവലിച്ചു

ഈ പശ്ചാ ത്തലത്തിലാണ് ഹർജി പിൻവലിച്ചത്

സ്മാരക നിർമ്മാണത്തിന് ശേഷമാണ് വിദ്യാർത്ഥികൾ കോളജ് ഗവേണിംഗ് കൌൺസിലിനെ സമീപിച്ചതെന്നും ഗവൺമെന്റ് ഹൈക്കോടതിയെ അറിയിച്ചു സ്മാരക നിർമ്മാണത്തിനെതിരെ രണ്ടു വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയുടെ പരിഗണനാവേളയിലാണ് ഗവൺമെന്റ് നിലപാട് വൃക്ത മാക്കിയത് രാഷ്ട്രത്തെ മതാധിപത്യത്തിലേക്ക് മാറ്റാൻ ശ്രമമാണ് നടക്കുന്ന തെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പയ്യ ന്നൂരിൽ പറഞ്ഞു വിലപേശലിന്റെ രാഷ്ട്രീയമാണ് രാജ്യത്ത് നട ക്കുന്നതെന്നും തിരഞ്ഞെടുപ്പിന്റെ പരാജയ കാരണങ്ങൾ കണ്ടെത്തി ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ സിപിഐഎം തീരുമാനിച്ചി ട്ടുണ്ടെന്നും യെച്ചൂരി പറഞ്ഞു

ജോസ് പറഞ്ഞു സംസ്ഥാനത്ത് പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളും മാലിനൃ നിർമാർജന പ്രവർത്തനങ്ങളും കർശനമായി നടപ്പാക്കാൻ ഗ്രീൻ ട്രിബ്യൂണൽ തീരുമാനിച്ചു

ഇടുക്കിയിലെ കുമളി അടിമാലി നെടു ങ്കണ്ടം പഞ്ചായത്തുകളെയാണ് മാതൃകാ സ്ഥാപനങ്ങളായി തെരഞ്ഞെ ടുത്തത് കേന്ദ്രഗവൺമെന്റിന്റെ അമൃത് പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നഗരസഭയിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്ന് കോർപ്പ റേഷൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ വൃക്തമാക്കി

പുൽപ്പള്ളി മരകടവിൽ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത കർഷകന്റെ കുടുംബത്തെ രാഹുൽഗാന്ധി എംപി ഫോണിൽ ബന്ധ പ്പെട്ടു കുടുംബത്തോടൊപ്പം ഉണ്ടെന്നും പാർലമെന്റിൽ കർഷക രുടെ ദുരിതം അവതരിപ്പിച്ചിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി അറിയിച്ചു നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ അടുത്ത ആഴ്ച്ച റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമനിക് അറിയിച്ചു നെടുങ്കണ്ടം പൊലീസ് സ്റ്റേഷനിൽ പരിശോധന നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്കുമാർ മരണപ്പെട്ട പീരു മേട് സബ് ജയിലിലും അദ്ദേഹം പരിശോധന നടത്തിയിരുന്നു രാജ്കു മാറിന്റെ ഭാര്യയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ റിമാന്റ് തടവുകാരൻ മരിച്ച സംഭവം കൊലപാതകമാണെന്ന സൂചനയുമായി മജിസ്ട്രേ റ്റിന്റെ റിപ്പോർട്ട് സാമ്പത്തിക തിരിമറിക്കേസിൽ റിമാന്റിൽ കഴിഞ്ഞി രുന്ന കോട്ടയം കുമരകം സ്വദേശി എം

സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച മജിസട്രേറ്റിന്റെ റിപ്പോർട്ടിലാണ് കൊലപാതകമാണെന്ന സൂചനയുള്ളത് വളാഞ്ചേരി വൈക്കത്തൂരിലെ വാടക ക്വാർട്ടേഴ്സിലെ ഹോം നേഴ്സിന്റെ കൊലപാതകത്തിലെ പ്രതിയെ പൊലീസ് അറസ്റ്റ് ചെയ്തു വെട്ടിച്ചിറ പുന്നത്തല സ്വദേശി കരിങ്കപ്പാറ അബ്ദുൾസ ലാമിനെയാണ് തിരൂർ ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിലിന്റെ നേതൃ ത്വത്തിൽ സംഘം അറസ്റ്റ് ചെയ്തത്